ഘട്ടമായി തിരഞ്ഞെടുപ്പ് നടക്കുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ

ഒരുമിച്ചിരുന്ന് ചർച്ച നടത്തണമെന്ന് കേന്ദ്ര പരിസ്ഥിതി വകുപ്പ് മന്ത്രി പ്രകാശ് ജാവദേക്കർ

ഹോക്കി മത്സരം ഭൂവനേശ്വറിൽ പുരോഗമിക്കുന്നു

യൂക്ക് ന്യൂഡൽഹിയിൽ മുഖ്യതെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുനിൽ അറ്റോറിയാണ് ഇക്കാര്യം മാധ്യമങ്ങളെ അറിയിച്ചത്

അറോറ വൃക്തമാക്കി

ജർമ്മൻ ചാൻസലർ ആഞ്ചല മെർക്കലുമായി പ്രതിനിധിതല ചർച്ചകൾക്ക് ശേഷമാണ് പ്രധാനമന്ത്രി ഇത് പറഞ്ഞത്

ഇന്ത്യൻ പ്രതിരോധ മേഖലയിലെ അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനും പ്രധാനമന്ത്രി ജർമ്മൻ ചാൻസലറോട് അഭ്യർത്ഥിച്ചു

നവീന സാങ്കേതിക വിദ്യ നിർമ്മിത ബുദ്ധി കൃഷി തീരസംരക്ഷണം വിദ്യാഭ്യാസം തുടങ്ങി നിരവധി കരാറുകളിൽ അഞ്ചാമത് ഇന്തോ ജർമ്മൻ ഗവൺമെന്റ്തല ചർച്ചകളിൽ ഒപ്പുവച്ചു

ഇന്ന് രാവിലെ രാഷ്ട്രപ്പിക്ട് ഭറ്പനിൽ ആഞ്ചല മെർക്കലിന് നൽകിയ സ്വീകരണത്തിൽ ശ്രീ

നിരവധി മന്ത്രിമാരും ഉന്നതോദ്യോഗസ്ഥരും ബിസിനസ് പ്രമുഖരും ആഞ്ചല മെർക്കലിനൊപ്പമുണ്ട് നേരത്ത് മഹാത്മാഗാന്ധി യുടെ അന്തൃ വിശ്രമ സ്ഥലമായ രാജ്ഘട്ടിൽ ആഞ്ചല് മെർക്കൽ പുഷ്പാർച്ചന നടത്തി

മേഖലയിലെ വായുമലിനീകരണതോത് ഏറ്റവും ഉയർന്ന നിലയിലെന്ന് പരിസ്ഥിതി മലിനീകരണ നിയന്ത്രണഅതോറിറ്റിചെയർപേഴ്സൺ ഉത്തർപ്രദേശ് ഹരിയാന ഡൽഹിചീഫ്സെക്രട്ടറിമാർക്കയച്ച കത്തിൽവ്യക്തമാക്കി വായുമലിനീകരണംകൂട്ടികൾഉൾപ്പെടെയുള്ള ജനങ്ങളുടെ ആരോഗൃത്തെ ബാധിക്കും എന്നതിനാൽ ആരോഗൃഅടിയന്തരാവസ്ഥായായി കണക്കാക്കണ മെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു

കാർഷിക അവശിഷ്ടങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കുന്നത് കാരണം പ്രദേശത്ത് വായുമലിനീകരണം വർദ്ധിച്ചതിനാലാണ് ഗവൺമെന്റ് ഇത്തരമൊരു തീരുമാനം കൈകൊണ്ടതെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്റിവാൾ ട്വീറ്റ്ചെയ്തു

ആസിയാൻ രാജ്യങ്ങളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുക പരസ്പര സാമ്പത്തിക സഹകരണം സൈബർ സുരക്ഷ രംഗത്തെ സഹകരണം എന്നിവ ശക്തമാക്കുക തുടങ്ങിയവയാണ് ഇത്തവണത്തെ ആസിയാൻ ഉച്ചകോടിയിലെ പ്രധാന ചർച്ചാ വിഷയങ്ങൾ

ശ്രീനഗറിൽഇന്നലെസെക്രട്ടറി മുതിർന്ന ഉദ്യോഗസ്ഥർഎന്നിവരുമായി നടത്തിയ ചർച്ചയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് ആത്മാർത്ഥമായും സുതാര്യ മായും പൂർണ്ണ സമർപ്പണത്തോടെയും പ്രവർത്തിക്കാൻ അദ്ദേഹം സെക്രട്ടറിമാരോട് നിർദ്ദേശിച്ചു ജമ്മുകശ്മീരിനെ സമാധാനത്തിന്റേയും അഭിവൃദ്ധിയുടെയും പാതയിലേക്ക് നയിക്കാൻ അദ്ദേഹംആഹാനം ചെയ്തു

പ്രശ്നത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ശ്രീ

അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിന് നിർമ്മിക്കുന്ന കിഴക്കൻ അതിവേഗ പാതയ്ക്കായി പണം അനുവദിക്കാത്തിന് ഡൽഹിയിലെ ആം ആദ്മി ഗവൺമെന്റിനെയും കേന്ദ്രമന്ത്രി വീമൂർശിച്ചു

ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിനായി ഗവൺമെന്റ് നടപ്പിലാക്കുന്നപദ്ധതികളുടെ തുടർച്ചയാണ് ഈ ഭിന്നശേഷിസംവരണമെന്ന് മന്ത്രി കെ

അധികമായ ഒരു ശതമാനം ഏതെല്ലാം തസ്തികകളിൽ ഏതെല്ലാം അംഗപരിമിത വിഭാഗങ്ങൾക്ക് അനുവദിക്കാമെന്ന്എക്സ്പേർട്ട് കമ്മിറ്റി പരിഗണിച്ച് ഉത്തരവ് പ്രത്യേകമായി പുറപ്പെടുവിക്കും

ഇന്ത്യൻ വനിതാ ടീം ലോക റാങ്കിംഗിൽ ഒമ്പതാമതാണ്

പെട്രോൾ ഡീസൽ ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ വൈദ്യുതവാഹനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ കഴിയും

ശീതകാലത്ത് ഡൽഹിയിലെ ഉയർന്ന തോതിലുള്ള അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കാൻ ഇത്തരം വൈദ്യുത വാഹനങ്ങളിലൂടെ കഴിയുമെന്ന് കേന്ദ്ര മന്ത്രി പറഞ്ഞു മലിനീകരണം കുറയ്ക്കാൻ മോദിഗവൺമെന്റ് നിരവധി നടപടികൾ എടുത്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു

കിഴക്കൻ എക്സ്പ്രസ്വേ നിർമ്മിച്ചതിലൂടെ ഡൽഹിയിൽമലിനീകരണത്തിന്റെ തോത് കുറഞ്ഞിട്ടുണ്ടെന്നും ശ്രീ പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു ന്യൂസ്ഡെസ്ക്ആകാശവാണി

ജെ

യും ശിവസേനയും തമ്മിലുള്ള തർക്കം തുടരവെ സംസ്ഥാനത്ത് ശിവസേനയുടെ മുഖ്യമന്ത്രി ഉണ്ടാകുമെന്ന് ശിവസേനയുടെ മുതിർന്ന നേതാവ് സഞ്ജയ്റൌത്ത് പറഞ്ഞു ഗവൺമെന്റ്രൂപീകരണവുമായി ബന്ധപ്പെട്ട് ബി ജെ

യുംശിവസേനയും തമ്മിൽ ഇതുവരെ ചർച്ചകൾ നടന്നിട്ടില്ല എന്നുംഅദ്ദേഹം പറഞ്ഞു ശിവസേന തീരുമാനിച്ചാൽ മഹാരാഷ്ട്രയിൽ സ്ഥിരതയുള്ള ഗവൺമുന്റ്രൂപീകരിക്കാനാകുമെന്ന് ശ്രീ

കഴിഞ്ഞ് ദിവസം എൻ സി

ഡൽഹി ഹൈക്കോടതി നിർദേശ പ്രകാരം രൂപീകരിച്ച എയിംസ് മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ടിനെ തുടർന്നാണ്ജാമ്യാപേക്ഷ തള്ളിയത്

ഭക്ഷ്യ എണ്ണ രണ്ടോ അതിൽ കൂടുതൽ തവണയോ പാകം ചെയ്യാൻ ഉപയോഗിച്ചാൽ അതിൽ അടങ്ങിയിരിക്കുന്ന ട്രാൻസ് ഫാറ്റുകൾ ആരോഗൃത്തിന് ദോഷമുണ്ടാക്കും

വാട്ട്സ് ആപ്പിലെ മെസേജുകളിലൂടെ സ്വകാരൃത ലംഘിക്കുന്നതിനെക്കുറിച്ച് ഗവൺമെന്റിന് ആശങ്കയുണ്ടെന്ന് ക്യേന്ദ്ര്മന്ത്രി രവിശങ്കർ പ്രസാദ് പറഞ്ഞു

നിലവിൽ ലക്ഷദ്വീപിന് ഭീഷണിയില്ലെന്നും ചുഴലിക്കാറ്റ് വടക്ക് പടിഞ്ഞാറേക്ക് നീങ്ങുകയാണെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു